പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ റായ് ബറേലി സന്ദർശിക്കും വിവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും

മൂന്ന് ദിവസത്തെ ഔദ്യോഗിക് സന്ദർശനാർത്ഥം മാലിദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മാലിക് സോലിക് ഇന്ന് ഇന്ത്യയിൽ എത്തും

ശ്രീലങ്കയിൽ റെനിൽ വിക്രമ സിംഗെ ഇന്ന് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും

ലോകകപ്പ് പുരുഷ ഹോക്കി കിരീടത്തിനായി ബെൽജിയം ഇന്ന് നെതർലെൻസിനെ നേരിടും

ആധുനിക കോച്ച് ഫാക്ടറി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി റായ്ബറേലിയിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും

തുടർന്ന് പ്രയാഗ്രാജിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി കുംഭമേളയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ആധുനിക കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്യും ഗംഗാപൂജയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി കുംഭമേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചി രിക്കുന്ന പ്രദർശന നഗരിയും സന്ദർശിക്കും പ്രയാഗ്രാജിലെ വിമാനത്താവളത്തിൽ പണികഴിപ്പിച്ച പുതിയ ടെർമിനിലിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും

എ ഗവൺമെന്റ വിജയിച്ചതായി പ്രധാനമന്ത്രി നൃരേന്ദ്ര മോദി തമിഴ്നാട്ടിലെ കന്യാകുമാരി നീൽഗിരിസ്പ് കോയമ്പത്തൂർ നാമക്കൽ സേലം എന്നിവിടങ്ങളിലെ ബൂത്ത്തല പ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസിലൂടെ സ്ംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മുൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നാണയപ്പെരുപ്പത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിയെന്നും എൻ

ഗവൺമെന്റിന് അത് തടയാനായെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇന്ത്യയിലെ ഏറ്റവും നല്ല കർഷക സൌഹൃദ ഗവൺമെന്റാണ് തന്റേതെന്നും അദ്ദേഹം പറഞ്ഞു

നിതി ആയോഗ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി എം

വനിതാ സംരംഭക പ്ലാറ്റ്ഫോമിന്റെ നവീകരിച്ച പോർട്ടലും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും നിതി ആയോഗ് ഉപാദ്ധ്യ ക്ഷൻ രാജീവ് കുമാർ സി ഇ ഒ അമിതാഭ് കാന്ത് ഇൻഡ്യയിലെ യു എൻ

രാജ്യത്തുടനീളമുള്ള മാതൃകാപരമായ പ്രവൃത്തികൾ കാഴ്ചവയ്ക്കുന്ന വനിതകളെ കണ്ടെത്തി ആദരിക്കുകയാണ് വിമൻ ട്രാൻസ്ഫോമിംഗ് അവാർഡിന്റെ ലക്ഷ്യം

ഹൈദ്രാബാ ദിലെ എൻ

എന്നാൽ ഇന്റർനെറ്റും ടെലിവിഷനും പ്രചരിച്ചപ്പോൾ ്വായനാശീലം കുറയുന്ന പ്രവ ണതയാണ് ഉണ്ടായതെന്നുപ്പശ്രീ വെങ്കയ്യ നായഡു കൂട്ടി ച്ചേർത്തു എല്ലാ ഗ്രാങ്ങ്ളിലും ഒരു വായന ശാല ടോയ്ലറ്റ് എന്നിവ സ്ഥാപിക്കുന്നത് പ്രതിജ്ഞയായി ജനങ്ങൾ ഏറ്റെടുക്ക ണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

പരീക്കർ ടിറ്ററിൽ കുറിച്ചു

റെയിൽവെ മേഖലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസവും പരിശീലനവും സംബന്ധിച്ച് ഇതൊരു വലിയ കാൽവയ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു

എന്നാൽ മലിനീകരണം സംബന്ധിച്ച് യാതൊരു തെളിവും ഇല്ലെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ അധ്യക്ഷൻ എ

മൂന്നാഴ്ച്ച്യ്ക്കുകം അനുമതി സംബന്ധിച്ച് പുതിയ ഉത്തരവ് ഇറക്കണമെന്ന് ത്മിഴ്നാട് മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടു

ഭുവനേശ്വറിലെ കലിംങ്ക സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴിനാണ് മത്സരം

പുരുഷ സിംങ്കിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ സമീർ ചൈനയുടെ ഷി യുക്കിന്റോട്ട് പ്രാജയപ്പെട്ടു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സോലിഹ് നാളെ കൂടിക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടു ത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചയും നടത്തും ചില സുപ്രധാന കാരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ച്ചേക്കുമെ ന്നാണ് സൂചന സോലിഹിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത് ഒരു മാസം പിന്നിടുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യാ സന്ദർശനം

അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ പിന്തുണ ആവശ്യമുള്ള പരിവർത്തന പ്രക്രിയയുടെ അടിസ്ഥാനമാണ് പാരിസ് കരാറിനുള്ള അനുമതി നൽകുന്നതിലൂടെ സാധ്യമാകുന്നതെന്ന് യു

സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു

അധികാര വടംവലിയ്ക്കൊടുവിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മഹിന്ദ രാജപക്ഷെ ഇന്നലെ രാജിവെച്ചിരുന്നു

ചുഴലിക്കാറ്റ് ആന്ധ്രാപേദശിന്റെ തീരത്ത് നാളെ ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരത്തോടുകൂടി കിഴക്കൻ ഗോദാവരിയിലും വടക്കൻ തീരപ്രദേശ ജില്ലകളിലും വീശിയടിക്കാൻ സാധൃതയുണ്ടെന്ന് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു